സുപ്രധാന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു

കേരളത്തിന്റെ ഊർജ്ജ് മേഖലയിൽ വൻകുതിച്ചു ചാട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജ്യൻ

ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ സ്ഥാപിതമായ അടൽ പര്യവരൺ ഭവന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നിർവ്വഹിച്ചു

ഐ എസ് എൽ ഫൂട്ബോളിൽ എ ടി കെ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ പോരാട്ടം

ഈ പദ്ധതികൾ കേരളമെക്ക് ്മനോഹര സംസ്ഥാനത്തെ കൂടുതൽ ശാക്തീകരിക്കുമെന്നും പ്രൊജ്യത്തിന്റെ പുരോഗതിക്കായി വലിയ സംഭാവനകൾ നൽകുന്നവീരാണ് മലയാളികളെന്നും അദ്ദേഹം പറഞ്ഞു ജാതിക്കും മതത്തിനും ഉപരിയായി എല്ലാവർക്കും വികസനം സാധ്യമാക്കുകയാണ് കേന്ദ്രസർക്കാരിന്റെ ലക്ഷ്യമെന്നും ശ്രീ

സംസ്ഥാനത്തിന്റെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ പദ്ധതിക്ക് സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

തിരുവനന്തപുരത്തെ സംയോജിത നിർദേശ നിയന്ത്രണ കേന്ദ്രത്തിനും പ്രധാനമന്ത്രി ഇന്ന് തറക്കല്ലിട്ടു തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് പദ്ധതിയും അരുവിക്കരയിലെ ജലശുദ്ധീകരണ പ്ലാന്റും ശ്രീ

മഹാകവി കുമാരനാശാന്റെ വരികളും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഉദ്ധരിച്ചു

ഗവേഷണത്തിനും നൂതന് കണ്ടുപിടുത്തങ്ങൾക്കും വിദ്യാഭ്യാസ നയം ഊർജ്ജം നൽകുമെന്നും വിശ്വഭാരതി സർവ്വകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ വെർച്ചലായി അഭിസംബോധന ചെയ്യവെ അദ്ദേഹം പറഞ്ഞു വിശ്വഭാരതി കേവലം ഒരു സർവ്വകലാശാല മാത്രമല്ല മഹത്തായ പാരമ്പര്യത്തിന്റെ ഭാഗം കൂടിയാണ് നാനാത്വത്തിൽ ഏകത്വം നിലനിർത്താൻ നിരന്തരമായി പ്രയത്നിക്കണമെന്നും പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് ആഹാനം ചെയ്തു

കർഷക സമരത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ സൽപ്പേരിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു

അദ്ദേഹം ഇന്നും ഏവർക്കും പ്രചോദനമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കൊൽക്കത്ത ദേശീയ ലൈബ്രറിയും സാംസ്കാരിക മന്ത്രാലയവും സംഘടിപ്പിച്ച പരിപാടി ശൌരാഞ്ജലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യ സമര പോരാളികളെ സംബന്ധിച്ച പ്രദർശനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു തന്റെ ഭാവി നോക്കാതെ ഇന്ത്യയുടെ സ്വാതന്ത്യത്തിനായി അക്ഷീണം പ്രയത്നിച്ച് രാജ്യത്തിനായി ജീവൻതൃജിച്ച വ്യക്തിയാണ് നേതാജിയെന്നും അദ്ദേഹം പറഞ്ഞു യുവതലമുറ തങ്ങളുടെ ജീവിതം രാജ്യത്തിനായി സമർപ്പിക്കണമെന്നും ശ്രീ അമിത് ഷാ ആഹ്വാനം ചെയ്തു

ചെലവ് കുറഞ്ഞതും പരിസ്ഥിത സൌഹൃദവും തുദ്ദേശീയവുമായ വൈദ്യുതി ഉത്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ്ട് ഇതിലൂടെ ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു

ലക്ഷദ്വീപിന്റെ പാരിസ്ഥിതിക സംരക്ഷണം ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ സമഗ്ര വികസനം സാധ്യമാക്കുമെന്ന് ശ്രീ

നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി അദ്ദേഹം ഇന്ന് രാവിലെയാണ് ലക്ഷദ്വീപിലെ കവരത്തിയിൽ എത്തിയത്

സ്വർണ വിലയിലും ഇടിവ്

വനിത സിംഗിൾസ് ഫൈനലിൽ നാളെ ജപ്പാൻ്റെ നവോമി ഒസാക്ക അമേരിക്കൻ താരം ജെന്നിഫർ ബ്രാഡിയെ നേരിടും

ബാംബോലിമിലെ ജി

സി സ്റ്റേഡിയത്തിലും ഫറ്റോർഡ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലുമാണ് സെമിഫൈനൽ മത്സരങ്ങൾ

രണ്ടാം പാദ മത്സരങ്ങൾ എട്ട് ഒമ്പത് തീയതികളിൽ നടക്കും